വെർച്വൽ സമ്മേളനത്തിൽ ഇന്ത്യ അദ്ധ്യക്ഷത വഹിക്കും

പ്രതിഷേധരംഗത്തുള്ളു കർഷകരുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ

കേരളത്തിൽ വരുംദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധൃത കടലിൽ പോകുന്നതിന് വിലക്ക്

കഴിഞ്ഞ വർഷം നവംബർ രണ്ടിനാണ് ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ അദ്ധ്യക്ഷ സ്ഥാനം ഉസ്ബക്കിസ്ഥാനിൽ നിന്നും ഇന്ത്യ ഏറ്റെടുക്കുന്നത് ഇന്ത്യയുടെ കാലാവധി ഇന്ന് പൂർത്തിയാ കും

ഒയിലെ പ്രധാനമന്ത്രിമാർ പങ്കെടുക്കുന്ന ചർച്ച എല്ലാ വർഷവും നടത്തിവരുന്നതാണ് റഷ്യ ചൈന കസാഖിസ്ഥാൻ കിർഗിസ്ഥാൻ തജിക്കിസ്ഥാൻ ഉസ്ബക്കിസ്ഥാൻ എന്നീ രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും ഇതിനുപുറമേ നിരീക്ഷണ പദവിയുള്ള അഫ്ഗാൻ പ്രസിഡന്റ് ഇറാനിലെ ഉപരാഷ്ട്രപതി ബെലാറസ് പ്രധാനമന്ത്രി മംഗോളിയ ഉപപ്രധാനമന്ത്രി എന്നിവരും സംബന്ധിക്കും

കോവിഡ് വെല്ലുവിളിയുടെ പശ്ചാത്തലത്തിൽ വാണിജ്യ സാമ്പത്തിക നിക്ഷേപ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തുമെന്ന് എസ്

സമാധാനം സുരക്ഷ വ്യാപാരം സമ്പദ്സ്ഥിതി സംസ്ക്കാരം എന്നീ മേഖലകളിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്ന സംഘട്ടനയെ ഇന്ത്യ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്

വീഡിയോ കോൺഫറൻസ് വഴിയാണ് ചർച്ചു ജനോവ ബയോഫാർമ ബയോളജിക്കൽ ഇ ഡോ റെഡ്നീസ് എന്നീ കമ്പനികളിലെ വിദഗ്ദ്ധ സംഘവുമായാണ് പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തുന്നത്

പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അഹമ്മദാബാദിലെ സൈഡസ് ബയോ ടെക് പാർക്ക് ഹൈദരാബാദിലെ ഭാരത് ബയോ ടെക് എന്നീ കമ്പനികളും പ്രധാനമന്ത്രി സന്ദർശിച്ചിരുന്നു

ക്ർഷ്കരുടെ എല്ലാ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കേൾക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി

സാരനാഥിലെ പുരാവസ്തു ഗവേഷണ സ്ഥലത്ത് ഈ മാസം ആദ്യം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ലൈറ്റ് ആൻഡ് സൌണ്ട് ഷോ അദ്ദേഹം വീക്ഷിക്കും

ഉത്തര പശ്ചിമ റയിൽവേയുടെ വൈദ്യുതീകരിച്ച ദിഗാവര ബന്ദികുയി ലൈനിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

രാജ്യത്തെ കർഷകരുടെ സൌകര്യാർത്ഥം കിസാൻ റെയിൽ റെയിൽവേ കാർഷിക ഉൽപന്നങ്ങൾ എത്തിക്കുന്നതിനായി പ്രത്യേക സർവീസുകൾ നടത്തുന്നു്ണ്ടെന്ന് മന്ത്രി പറഞ്ഞു കർഷകരുടെ പുരോഗതിക്ക് സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീ ഗോയൽ പറഞ്ഞു

എസ് വെള്ളിയാഴ്ച വൈകുന്നേരമാണു തകർന്നുവീണത് കാണാതായ പൈലറ്റ് കമാൻഡർ നിഷാന്ത് സിംഗിനുവേണ്ടി തെരച്ചിൽ പുരോഗമിക്കുകയാണ്

സിന്ധു ഭവൻ സാനന്ദ് പ്രദേശങ്ങളിൽ സ്ഥാപിച്ച മേൽപ്പാലങ്ങളുടെ ഉദ്ഘാടനമാണ് വ്ടിർച്ചൽ യോഗത്തിലൂടെ അദ്ദേഹം നിർവഹിക്കുന്നത്

കേരളത്തിൽ കനത്ത മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്

തെക്കൻ ജില്ലകളിൽ ശക്തമായ ജാഗ്രതാ നിർദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത്

സിഖ് മത സ്ഥരുടെ പ്രമുഖ ആരാധനാലയമായ അമൃത്സറിലെ സുവർണ്ണക്ഷേ ത്രം ഉൾപ്പെടെ രാജ്യമെമ്പാടുമുള്ള ഗുരുദ്ധാര്കളിൽ പ്രത്യേക പ്രാർ ത്ഥനകൾ സംഘടിപ്പിച്ചു

ലോകമെമ്പാടും ഗുരു നാനാക് ദേവ് ജിയുടെ സ്വാധീനം വ്യക്തമായി ദർശിക്കാനാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി പറഞ്ഞു

ഗംഗയുടെയും യമുനയുടെയും കരകളിലുള്ള സ്നാനഘട്ടങ്ങളിൽ നടന്ന പ്രത്യേക പൂജകളിൽ നിരവധി പേർ പങ്കെടുത്തു

വാരണാസിയിലെ രാജ്ഘട്ടിൽ പ്രധാന മന്ത്രി ദീപം തെളിക്കുന്നതോടെ ഉത്സവത്തിനു തുടക്കമാവും

വ്യക്തിഗത പരിചരണ പദ്ധതികൾ ആവിഷ്കരിച്ചു കുട്ടികളുടെ സർഗാത്മകത വർധിപ്പിക്കാൻ കൌൺസിലർമാർ നടത്തിയ ശ്രമങ്ങൾക്കാണ് സുപ്രീഠ കോടതിയുടെ പ്രശംസ

ആശുപത്രിയിലെ സൌകര്യങ്ങൾ വർധിപ്പിക്കണ മെന്ന് കേന്ദ്രസർക്കാരും നിർദേശിച്ചിരുന്നു